തുടക്കമാകും

റൈഡേഴ്സ് കിങ്സ് ഇലവൻ പഞ്ചാബ് പോരാട്ടം

ഇ ഒ മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം വീഡിയോ കോൺഫറൻസിംഗിലൂടെ ചർച്ച നടത്തും നിതി ആയോഗും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയവും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന യോഗത്തിലാണ് ചർച്ച

ക്രൂഡ് ഓയിലിന്റെ ലോകത്തെ മൂന്നാമത്തെ വലിയ ഉപഭോക്താവാണ് ഇന്തൃ

സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കേന്ദ്രത്തിന്റെ ചികിൽസാ മാർഗ നിർദേശങ്ങൾ നടപ്പിലാക്കുന്നതും ഡോക്ടർമാരുടെയും മറ്റു ജീവനക്കാരുടെയും അർപ്പണ ബോധവുമാണ് ഇതിന് സഹായിക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

കോവിഡ് തിരിച്ചറിയുന്നതിനായി ആന്റിജൻ പരിശോധനകൾ വിപുലമായി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്

ആരോഗ്യ പ്രവർത്തകരിൽ രോഗബാധ വർധിക്കുന്ന സാഹചര്യത്തിൽ സമ്പർക്കം കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട്

കർഫ്യൂ ഭാഗിക ലോക്ക്ഡൌൺ മറ്റു നിയന്ത്രണങ്ങൾ എന്നിവ ഏർപ്പെടുത്താൻ നിർബന്ധിതമാവുകയാണ് പലരാജ്യങ്ങളും യൂറോപ്പിലുടനീളമുള്ള രാജ്യങ്ങൾ കൊറോണ വൈറസിന്റെ വ്യാപനത്തെ ചെറുക്കുന്നതിന് പുതിയ നടപടികൾ നടപ്പാക്കുന്നു പോളണ്ടിൽ സ്കൂളുകളും റെസ്റ്റോറന്റുകളും രണ്ടാഴ്ചത്തേക്ക് അടച്ചിടാൻ ഉത്തരവിട്ടു ഫ്രാൻസ് കർഫ്യൂ നീട്ടി ഫ്രാൻസിൽ റെക്കോർഡ് വർധനയാണ് ജർമനിയിൽ തിരക്കേറിയ തെരുവുകളിൽ മാസ്ക് നിർബന്ധമാക്കി

ലാത്പിയ ലിത്വാനിയ എന്നീ രാജ്യങ്ങളും വൈറസിനെ പ്രതിരോധിക്കാൻ പുതിയ നടപടികൾ നടപ്പാക്കി

ശനിയാഴ്ച കാഷ്ഗർ പ്രവിശ്യയിൽ ഒരു കുടുംബത്തിൽ രോഗം കണ്ടെത്തിയിരുന്നു

ബുധനാഴ്ചയാണ് വോട്ടെടുപ്പ്

നവരാത്രി ആഘോഷങ്ങളുടെ അവസാന ദിവസമായ ഇന്ന് വിദ്യാരംഭത്തിന് ശുഭസൂചകമായാണ് കരുതുന്നത്

തിരൂർ തുഞ്ചൻ പറമ്പിൽ ഇപ്രാവശ്യം വിദ്യാരംഭ ചടങ്ങുകൾ നടത്തുന്നില്ല

അക്ഷരത്തിന്റെയും അറിവിന്റെയും ലോകത്ത്േക്ക് പുതുതായി കടന്നുവരുന്ന കുഞ്ഞുങ്ങൾക്ക് ഭാസുരമായി ഭാവിയുണ്ടാകട്ടെയെന്നും മുഖൃമന്ത്രി ആശംസിച്ചു

തിന്മയ്ക്ക് മേൽ നന്മയുടെ വിജയം ഉദ്ഘോഷിച്ച് രാജ്യം ഇന്നലെ ദസറ ആഘോഷിച്ചിരുന്നു

അതിന്റെ ഭാഗമായി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വിമാനങ്ങളും രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള താൽക്കാലിക വ്യോമപാതാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു

രാജ്യരക്ഷാം മന്ത്രി രാജ്നാഥ് സിങ് സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് നാവിക സേനാ മേധാവി അഡ്മിറൽ കരംബീർ സിങ് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ ആർ

എസ് ബദൌരിയ എന്നിവർ നാളെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും

യുമായ മഹേഷ് കനോഡിയക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലി അർപ്പിച്ചു

യായി പ്രവർത്തിച്ചു

പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ ഇരു ടീമിനും വിജയം അനിവാര്യമാണ്

ആറ് ലക്ഷം വായ്പ അപേക്ഷകളാണ് ലഭിച്ചത് ഇതിൽ മൂന്ന് ലക്ഷം പേർക്ക് വായ്പ അനുവദിച്ചു

മാവോയിസ്റ്റുകളെ മുഖ്യധാരയിലേക്ക് മടക്കിയെത്തിക്കാൻ പോലീസ് ആരംഭിച്ച വീട്ടിലേയ്ക്കു മടങ്ങൂ കാമ്പയിന്റെ ഭാഗമായാണ് ഇവർ കീഴടങ്ങിയതെന്ന് ദന്തേവാഡ എസ് പി അഭിഷേക് പല്ലവ പറഞ്ഞു